മുരളീധരൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പിളർന്നു അനധികൃത സ്വത്ത് സമ്പാദനക്കേസിൽ വിജിലൻസ് റെയ്ഡ് അനുഗ്രഹമായെന്ന് മുൻ മന്ത്രി വി എസ് ശിവകുമാർ ഇന്ന് ശിവരാത്രി ക്ഷേത്രങ്ങളിൽ വൻഭക്തജനത്തിരക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രാഥമിക പരീക്ഷ നാളെ വെല്ലിങ്ടണിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി മഴ മൂലം നിർത്തിവെച്ചു തമിഴ്നാട് അവിനാശിയിൽ ഇന്നലെ വാഹനാപകടത്തിൽ മരി ച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു

അപകടത്തിൽ മരിച്ച പാലക്കാട് കൊണ്ടപ്പുറം സ്വദേശി രാകേഷിന്റെ മൃതദേഹം ചെറുതുരുത്തിയിലും മംഗലംകുന്ന് സ്വദേശി ശിവകുമാറിന്റെ മൃതദേഹം പാമ്പാടി ഐവർ മഠത്തിലും പലക്കാട് ചന്ദ്രനഗറിലെ റോഷ്ന ജോണിന്റെ മൃതദേഹം ചന്ദ്രനഗർ പള്ളി സെമി ത്തേരിയിലുമാണ് സംസ്കരിക്കുന്നത് പയ്യന്നൂർ സ്വദേശി സനൂപിന്റെ മൃതദേഹം രാവിലെ കാനം ബ്രദേഴ്സ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ചു

റോഡ് സുരക്ഷയുടെ അതീവ പ്രാധാന്യത്തെ കൂടി ഓർമ്മപ്പെടുത്തു ന്നതാണ് ഈ സംഭവം ഡിവൈഡറുകളുടെയും റോഡ് സുരക്ഷയുടെയും പ്രാധാന്യം പരിഗണിച്ചാണ് കേന്ദ്രം മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത് അതേപറ്റിയും ദേശീയ പാത വികസനത്തെപ്പറ്റിയും ചർച്ചകൾ നീളുകയാണ് നിയമനിർമ്മാണങ്ങൾ ജന സുരക്ഷയ്ക്കു വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിയമത്തോടൊപ്പം നിൽക്കാൻ മലയാളികൾ തയ്യാറാകണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു അവിനാശി വാഹനാപകടത്തെക്കുറിച്ച് തമിഴ്നാട് ഗവൺമെന്റ് അന്വേഷണം തുടരുകയാണെന്ന് മന്ത്രി എ

അപകടം വരുത്തിയ കണ്ടെയ്നർ ലോറി ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നും മന്ത്രി സ്വകാര്യ വാർത്താചാനലി നോട് പറഞ്ഞു അവിനാശി വാഹനാപകടത്തെക്കുറിച്ച് മോട്ടോർ വാഹനവ കുപ്പ് നാളെ സംസ്ഥാന ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി യേക്കും

എൻഫോഴ്സ്മെന്റ് സംഘം ഇന്നലെ അപകട സ്ഥലം സന്ദർശിച്ചിരുന്നു കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് സൂചന കർണാടകയിലെ ഹുസൂരിൽ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു

നിരവധി പേർക്ക് പരിക്കേറ്റു

ബെങ്കലൂരുവിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് വന്ന കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് പുലർച്ചെ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പിളർന്നു അനൂപ് ജേക്കബ് ജോണി നെല്ലൂർ വിഭാഗങ്ങൾ കോട്ടയത്ത് വെപ്പേറെ യോഗം ചേർന്നതോടെയാണ് പിളർപ്പ് പൂർത്തിയായത് പാർട്ടി സംസ്ഥാന കമ്മറ്റി യോഗമാണ് ചേർന്നതെന്ന് ഇരുനേതാക്കളും അറിയിച്ചു പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ അനൂപ് ജേക്കബ് അച്ചാരം വാങ്ങിയെന്നും പാർട്ടി എന്താണെന്ന് അനൂപിന് അറിയില്ലെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി ലയനം പ്രഖ്യാപി ക്കാനാണ് ജോണി നെല്ലൂർ വിഭാഗം യോഗം ചേരുന്നത് എന്നാൽ അനൂപ് ജേക്കബ് ലയനത്തിനെതിരാണ് ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് അനൂപ് ജേക്കബ് ലയനത്തെ എതിർത്തതെന്ന് ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി

വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകാനാണ് അനൂപ് ജേക്ക ബിന്റെ തീരുമാനം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് റെയ്ഡ് അനുഗ്രഹമായെന്ന് മുൻ മന്ത്രി വി

വീട്ടിലെ റെയ്ഡിൽ ആസ്തി മാത്രമല്ല ബാധ്യതകളും വിജി ലൻസിന് വ്യക്തമായെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തന്നെ തേജോവധം ചെയ്യാനാണ് റെയ്ഡ് നടത്തിയതെന്നും റെയ്ഡ് വിഫലമായത് രാഷ്ട്രിയമായി അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടിയാ ണെന്നും ശിവകുമാർ വ്യക്തമാക്കി അയോധ്യയിൽ മസ്ജിദ് നിർമ്മാണത്തിന് കോടതി അനുവ ദിച്ച അഞ്ചേക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡ് സ്വീകരിച്ചതായി റിപ്പോർട്ട്

പകരം സ്ഥലം വേണ്ടെന്ന് മുസ്തിം വ്യക്തി നിയമ ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നു

സി എം ആറിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിന്റെ സ്വപ്ന പദ്ധ തിയാണ് ക്ഷയരോഗ നിർമ്മാർജ്ജനമെന്നും അദ്ദേഹം പറഞ്ഞു ഗർഭകാലത്തെ മാതൃ മരണങ്ങൾ ഇല്ലാ താക്കണ മെന്നും രാജ്യത്ത് ഒരാൾ പോലും ഗർഭകാലത്ത് മരിക്കാൻ ഇടയാക്കില്ലെന്ന് ഡോക്ടർമാർ ദൃഢമായ തീരുമാനം എടുക്കണമെന്നും ഡോ ഹർഷവർധൻ നിർദേശിച്ചു

എന്നാൽ പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ് വന്നതായാണ് വിലയിരുത്തൽ ശിവരാത്രി ആഘോഷത്തിന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു

ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് ശിവകീർത്തന ആലാപനവും ഉപവാസവും നടത്തുക വഴി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ആലുവ മണപ്പുറം ഉൾപ്പെടെ പുണ്യ സ്ഥലങ്ങളിൽ ബലിതർപ്പ ണത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് വിശ്വാസികൾക്ക് ശിവരാത്രി ആശംസകൾ നേർന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഉത്സവ വേള സമാധാനവും സന്തോഷവും ഐശ്ചര്യവും പ്രദാനം ചെയ്യട്ടെയെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ജന ങ്ങൾക്ക് ആശംസ നേർന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുറവൂർ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തി

ജെ പി നേതാക്കളായ എം

ഗോപകുമാർ തിരുനെല്ലൂർ ബൈജു

ബിനോയ് എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തെരഞ്ഞെടുപ്പിന് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും

പ്രാഥമിക പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണ്

ഈ സമയത്തിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം വൈകിയെത്തുന്നവരെ പ്രവേശിപ്പിക്ക രുതെന്ന് പി എസ്

വ്യക്തമായ കാരണമില്ലാതെ പരീക്ഷ എഴുതാതിരിക്കുന്നത് കുറ്റ കരമാണെന്ന് പി

സി അറിയിച്ചിട്ടുണ്ട് വെല്ലിങ്ടണിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി ഇന്നത്തേക്ക് നിർ ത്തിവെച്ചു

പിച്ച് പരിശോധിച്ച ശേഷം ഇന്നത്തെ മത്സരം അവസാനിപ്പിക്കാൻ അമ്പെയർമാർ തീരുമാനിക്കുകയാ യിരുന്നു നേരത്തെ ടോസ് നേടിയ ന്യൂസിലാന്റ് ഇന്ത്യയെ ബാറ്റി ങിന് അയക്കുകയായിരുന്നു

ഇന്ത്യയുടെ ഇടംകൈയ്യൻ സ്പിന്നർ പ്രഗ്യാൻ ഓജ അന്താ രാഷ്ട്ര ഫസ്റ്റ്ക്ളാസ് ക്രിക്കറ്റുകളിൽ നിന്ന് വിരമിച്ചു

ട്വിറ്റർ അക്കൌണ്ടിലാണ് ഓജ വിരമിക്കൽ പ്രഖ്യാപിച്ചത് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് ഓസ്ട്രേലിയയിൽ ഇന്ന് തുടക്കമാകും സിഡ്നിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഓസ്ട്രേലിയയെ നേരിടും

ഇന്ത്യ ഉൾപ്പെടെ പത്ത് ടീമുകളാണ് വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്നത് ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് മണിപ്പൂർ ക്ലബ് നെറോക്കയെ നേരിടും ഇംഫാലിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം

എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ നേരിടും

ജീവിതം തന്നെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പും ചേസ് ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിഡ്സ് സോക്കർ ഫെസ്റ്റിന് ഇന്ന് കൊയിലാണ്ടിയിൽ തുടക്കമാകും

സെമിയും ഫൈനലും ഞായറാഴ്ച നടക്കും

വ്യാവസായിക പരിശീലനവകുപ്പും സംസ്ഥാന നെപുണ്യ വികസനമിഷനായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ചേർന്നാണ് ഇന്ത്യ സ്കിൽസ് കേരള സംഘടിപ്പിക്കുന്നത് രാവിലെ മന്ത്രി ടി

മേളയോടനുബന്ധിച്ച് സാങ്കേതികപ്രദർശനം വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പും അഡീഷണൽ സ്കിൽ അക്കിസിഷൻ പ്രോഗ്രാമും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന റീബൂട്ട് കേരള ഹാക്കത്തോണിന് കോഴിക്കോട് ഉള്ള്യേരി എം ദാസൻ ഇൻസ്റ്റിറ്റിയൂട്ട് ഓഫ് ടെക് നോളജിയിൽ തുടക്കമായി

വിവിധ വകുപ്പുകൾ നേരിടുന്നപ്രശ്നങ്ങൾക്ക് മികച്ച സാങ്കേതികപരിഹാരം നിർദേശിക്കാനുള്ള അവസരമാണ് ഇതെന്ന് കലക്ടർ പറഞ്ഞു ജില്ലയിലെ വിദ്യാർത്ഥികൾ ഗതാഗത വകുപ്പിലെ പ്രശ് നങ്ങൾക്കുള്ള പരിഹാരഹങ്ങളാണ് നിർദ്ദേശിക്കേണ്ടത്

സാങ്കേതിക വിദഗ്ദ്ധർ വകുപ്പ് പ്രതിനിധികൾ സോഷ്യൽ എൻജിനീയർ എന്നിവരടങ്ങുന്ന സമിതിയാണ് വിധി നിർണ്ണയിക്കുക

കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

എഫ് നേതൃയോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും

എ ജി റിപ്പോർട്ടും തദ്ദേശ സ്ഥയംഭരണ തെരഞ്ഞെടുപ്പും യോഗത്തിൽ പ്രധാന ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് സ്വർണവിലയിൽ റെക്കോർഡ് വർധന

ഇന്ന് ലോക മാതൃഭാഷാ ദിനം